ചന്ദ്രന്റെ ഉപരിതലത്തിൽ വിക്രം ലാന്ററിന്റെ സോഫ്റ്റ്ലാന്റിംഗിന് തൊട്ടുമുൻപ് സിഗ്നൽ നഷ്ടപ്പെടുകയായി രുന്നു

മുൻ നിശ്ചയിച്ച പാതയിൽ നിന്ന് ലാന്റർ വ്യതിചലിച്ചതാവാം ബന്ധം നഷ്ട മായതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ഓർബിറ്ററുമായി വിക്രംലാന്റർ ആശയവിനിമയം നടത്തുന്നുണ്ടോയെന്ന് പരിശോധിച്ച് വരികയാണെന്ന് ഐ എസ് ആർ ഒ ചെയർമാൻ കെ ശിവൻ ബംഗളുരുവിൽ പറഞ്ഞു ഓർബി റ്ററിൽ നിന്ന് ചിത്രങ്ങൾ ലഭിച്ചശേഷമേ ഇതേപ്പറ്റി വൃക്തമാവൂയെന്ന് അദ്ദേഹം അറിയിച്ചു

തുടർന്നാണ് ആശയവിനിമയം നഷ്ടമായ ത് സോഫ്റ്റ് ലാന്റിംഗ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ദൌതൃത്തിന്റെ പ്രധാനഭാഗമായ ഓർബിറ്റർ ഒരുവർഷത്തേക്ക് ചന്ദ്രനെ പ്രദക്ഷിണം ചെയ്തു കൊണ്ടിരിക്കും ഉപരിതലത്തെ സംബന്ധിച്ച വിവരങ്ങളും ഫോട്ടോകളും ഓർബിറ്ററിൽ നിന്ന് ലഭ്യമാകും രദേഷ്ടെടു ചന്ദ്രയാൻ ദൌതൃം പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ എട്ടിന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും ബംഗളുരുവിലെ ഐ എസ് ആർ ഒ കൺട്രോൾ സെന്ററിൽ നിന്നാ യിരിക്കും പ്രധാനമന്ത്രിയുടെ പ്രസംഗം ചന്ദ്രയാൻ വിക്രംലാന്റർ ചന്ദ്രനിൽ ഇറങ്ങുന്നത് കാണാൻ പ്രധാനമന്ത്രി ബംഗളുരുവിലെ ഐ എസ് ആർ ഒ കേന്ദ്ര ത്തിൽ എത്തിയിരുന്നു ലാന്റിംഗ് വിജയകരമായി പൂർത്തിയാക്കാൻ കഴി ഞ്ഞില്ലെങ്കിലും ഇതിനുപിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞർ നിരാശരാകരു തെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു ഇസ്രോയുടെ നേട്ടങ്ങൾ മഹത്തരമാണെന്നും ഇത്തരം ദൌത്യങ്ങളിൽ ജയപരാജയങ്ങൾ സ്വാഭാവിക മാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ നേട്ടങ്ങളിൽ ഇന്ത്യ അഭിമാനിക്കുന്നതായും സ്ഥൈരൃം മുന്നോട്ട് പോവുകയാണ് വേണ്ട തെന്നും നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു കേന്ദ്രമന്ത്രിമാരായ അമിത്ഷായും നിർമല സീതാരാമനും ഡോക്ടർ ഹർഷവർധനും കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധിയും ഉൾപ്പെടെ നിരവധി പ്രമുഖർ ഐ

ആർ ഒക്ക് ഐക്യ ദാർഢ്യവുമായി മുന്നോട്ടുവന്നു ഇപ്പോഴുണ്ടായ പ്രശ്നങ്ങളിൽ നിരാശ പാടി ല്ലെന്നും ഗവേഷണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടുപോകണമെന്നും നേതാ ക്കൾ ആവശ്യപ്പെട്ടു

ഓണക്കാലത്തെ ബില്ലുകൾ മാറാനും മറ്റ് സാമ്പത്തിക ഇടപാടു കൾക്കും വേണ്ടിയാണ് ട്രഷറികൾ നാളെ തുറക്കുന്നത് അടുത്ത തിങ്കളാഴ്ച വരെ അവധി ദിനങ്ങളായതുകൊണ്ടാണ് നാളെ ട്രഷറി തുറക്കുന്നത് ദർവ്വെടെ ദ എറണാകുളത്തെ തകർന്ന റോഡുകൾ മന്ത്രി ജി സുധാകരൻ ഇന്ന് പരി ശോധിക്കും

നഗര റോഡുകൾ പാടെ തകർന്നതുമൂലം രൂക്ഷമായ ഗതാഗത കുരു ക്കാണ് കൊച്ചിയിൽ അനുഭവപ്പെടുന്നത്

ദർവ്വെട്ടറ നാലുമാസമായി പെയ്യുന്ന മഴ റോഡ് നിർമ്മാണത്തിന് തടസ്സമായെന്ന് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു മഴക്കാലത്ത് റോഡ് നിർമ്മാണം നടത്തു ന്നത് പൊതുമരാമത്ത് നിയമാവലിക്ക് വിരുദ്ധമാണ് മഴ മാറിയാൽ ഉടൻ റോഡ് നിർമ്മാണം പുനരാരംഭിക്കുമെന്ന് പൂച്ചാക്കലിൽ മന്ത്രി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു രദ്ദേഷ്ടങ കുടുംബശ്രീയെ സാമ്പത്തിക ചൂഷണത്തിന് ഉപയോഗിക്കരുതെന്ന് മന്ത്രി എ

കുടുംബശ്രീയിൽ നിന്ന് വായ്പയെടുത്ത് ചെറുകിട സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ ജനങ്ങൾക്ക് മറിച്ച് നൽകി ലാഭ മുണ്ടാക്കുന്ന പ്രവണത പൊറുപ്പിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി തൃശൂർ കോവിലകത്തുംപാടത്ത് മുറ്റത്തെ മുല്ല ലഘുഗ്രാമീണ വായ്പാ പദ്ധതി ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ജോസ് ടോമിന് നൽകുന്ന ചിഹ്നത്തിന്റെ കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും മൂന്ന് മുന്നണികളും കൺവെൻഷനുകളും പ്രചാ രണ പരിപാടികളും ഊർജ്ജിതമാക്കിയതോടെ തെരഞ്ഞെടുപ്പ് രംഗം ചൂടു പിടിച്ചു രുട്ട്ട്ട്ട്ട്ട്ട്ട പാലക്കാട് അട്ടപ്പാടി മേഖലയിലെ അംഗൻവാടികളിൽ കാലാവധി കഴി ഞ്ഞതും കേടുവന്നതുമായ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്ത സംഭവ ത്തിൽ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർക്കെതിരെ സമൻസ് അയയ്ക്കാൻ ഭക്ഷ്യ കമ്മീഷൻ തീരുമാനിച്ചു തിരുവനന്തപുരം നെടുമങ്ങാട് മേനംകുളം ഗോഡൌണുകളിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങൾ കരി ഞ്ചന്തയിലേക്ക് കടത്തിയെന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സപ്പൈകൊ തിരുവനന്തപുരം റീജ്യണൽ മാനേജരിൽ നിന്ന് വിശദീകരണം തേടാനും കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്

രദേഷ്ടെടു കേന്ദ്രനിയമം മറികടന്ന് സംസ്ഥാന ഗവൺമെന്റ് രൂപീകരിച്ച വഖഫ് ചട്ടം ഹൈക്കോടതി റദ്ദാക്കിയത് ഗവൺമെന്റിനേറ്റ കനത്ത തിരിച്ചടിയാണെന്ന് മുസ്തിംലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

രണ്ടുതവണ വഖഫ് ബോർഡ് അംഗമായവർക്ക് വീണ്ടും അംഗത്വം പാടില്ലെന്ന ഗവൺമെന്റിന്റെ വഖഫ് ചട്ടമാണ് ഹൈക്കോടതി റദ്ദാ ക്കിയത് ബോർഡിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് പുതിയ നീക്കം നടത്തിയതെന്ന് മജീദ് ആരോപിച്ചു

വൈകീട്ട് നാരങ്ങാപുറത്തുനിന്ന് തലശേരിയിലേക്ക് അദ്ദേ ഹത്തെ സ്വീകരിച്ച് ആനയിക്കും

രാവിലെ ന്യൂഡൽഹി ഗുരുഗ്രാം ജിഡി ഗോയെങ്ക സ്റ്റേഡിയത്തിലാണ് മത്സരം മിസോറാമാണ് എതിരാളി കൾ

ചണ്ണപ്പേട്ടയിൽ വില്ലേജ് ഓഫീസ് മന്ദിരം സമർപ്പണവും കുട്ടനാട് ലാന്റ് ട്രിബ്യൂണൽ പട്ടയ വിതരണവും നടത്തുകയായിരുന്നു മന്ത്രി രുട്ട്ട്ട്ട്ട്ട്ട്ട്ട സിനിമാ ടിക്കറ്റുകളിലെ വിനോദ നികുതി നിർത്തിവെച്ചെന്ന പ്രചാരണം വസ്തുതാവിരുദ്ധമാണെന്ന് തദ്ദേശവകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു നികുതി പിരിവ് കോടതി സ്റ്റേ ചെയ്തിട്ടില്ല

ടി നിരക്ക് കുറച്ചപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിച്ചിരുന്ന വരുമാനം കുറഞ്ഞതിനെ തുടർന്ന് നികുതി ഗവൺമെന്റ് പുനഃസ്ഥാപിച്ചിരുന്നു ദർവ്വെട്ടറ കേരളത്തിലെ കുന്നും മലകളും സംരക്ഷിക്കുന്നതിന് തദ്ദേശ സ്ഥാപന ങ്ങൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണമെന്ന് മാധവ് ഗാഡ്ഗിൽ അഭിപ്രായപ്പെ ട്ടു കാറികൾ കൃത്യമായി പരിപാലിക്കണമെന്നും ജനങ്ങൾ ഒരുമിച്ച് നിന്നാൽ പശ്ചിമഘട്ടം തിരിച്ചുപിടിക്കാമെന്നും ഗാഡ്ഗിൽ പറഞ്ഞു കണ്ണൂർ ജില്ലാ പരി സ്ഥിതി സമിതി സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മാധവ് ഗാഡ്ഗിൽ

ടി മേളകളിൽ അനിമേ ഷൻ നിർമ്മാണവും സ്ക്രാച്ച് പ്രോഗ്രാമിംഗും മത്സര ഇനങ്ങളായി ഉൾപ്പെ ടുത്തും

ജലനിരപ്പ് നിയന്ത്രിക്കാൻ ഷട്ടറുകൾ വഴി കൂടുതൽ ജലം ഒഴുക്കിവി ടുന്നതിനാൽ ഡാമിന്റെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലി ക്കണമെന്ന് കെ എസ്

ഉച്ചകഴിഞ്ഞ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പാർക്ക് ഉദ്ഘാ ടനം ചെയ്യും പൂന്തോട്ടവും കളിസ്ഥലവും നടപ്പാതകളും ലാന്റ് സ്കേപ്പു കളും പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട്

പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രിമാരായ കടന്നപ്പള്ളി രാമചന്ദ്രൻ കെ കെ ശൈലജ മേയർ സുമ ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുക്കും രദേഷ്ടെടു അട്ടപ്പാടി ഗോട്ടിയർകണ്ടി മലയിൽ മൂന്നുകോടിയോളം രൂപ വിലവരുന്ന കഞ്ചാവ് ചെടികൾ പൊലീസ് നശിപ്പിച്ചു രഹസ്യ വിവരത്തെ തുടർന്ന് പൊലീസ് നടത്തിയ തെരച്ചിലിലാണ് വൻതോതിൽ കഞ്ചാവ് കൃഷി കണ്ടെ ത്തിയത് രുട്ടിട്ട മുത്തലാഖ് നിയമം പ്രാബലൃത്തിൽ വന്നശേഷം സംസ്ഥാനത്തെ രണ്ടാ മത്തെ കേസ് പരപ്പനങ്ങാടി മജിസ്ട്രേറ്റ് കോടതിയിൽ ഫയൽ ചെയ്തു കട ലുണ്ടി ആനങ്ങാടി പീടിയേക്കൽ ഫസീല ഭർത്താവ് പപ്പടകത്ത് അബ്ദുസ മദിനെതിരായാണ് മുത്തലാഖ് ചൊല്ലിയെന്ന പരാതി നൽകിയത് രദ്ദേഷ്ടങ മലയിടിച്ചിലിനെ തുടർന്ന് അടച്ചിട്ടിരുന്ന ദേവികുളം ഗ്യാപ് റോഡ് ഇന്ന് ഗതാഗതത്തിന് തുറന്നു കൊടുക്കും ചെറുവാഹനങ്ങൾക്ക് രാവിലെ ഏഴുമുതൽ വൈകീട്ട് ആറുവരെ കടന്നുപോകാനാണ് തൽക്കാലം അനു വാദം രുട്ടിട്ട്ട്ട്ട്ട്ട്ട തേക്കടിയിൽ വനംവകുപ്പ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ വിനോദ സഞ്ചാര കേന്ദ്രത്തെ തകർക്കാൻ നടത്തുന്ന ഗൂഢശ്രമമാണെന്ന് ഡീൻ കുര്യാ ക്കോസ് എം

എൽ എയെപോലും ചർച്ചയ്ക്ക് വിളിക്കാതിരുന്നത് വനം വകുപ്പിന്റെയും ഗവൺമെന്റിന്റെയും ഗൂഢാലോചനക്ക് തെളിവാണെന്നും ഡീൻ വിലയിരുത്തി